ഡൽഹിയിൽ സമരം ചെയ്യുന്ന് കർഷകരുമായി കേന്ദ്ര മന്ത്രി സംഘം ഇന്ന് അഞ്ചാം ഘട്ട ചർച്ചുൻടത്തും

കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ

ഐഎസ് എൽ ഫുട്ബോളിൽ ബംഗളൂരു എഫ് സി ചെന്നൈയിൻ എഫ്

ഐ

നിരവധി ചരിത്രപരമായ മാറ്റങ്ങൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്

രാജ്യത്തെ കോർപ്പറേറ്റ് നിരക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിരക്കുകളിൽ ഒന്നാണ്

ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തെ പ്രചരിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്

രാജ്യത്തെ യുവജനങ്ങൾക്ക് തങ്ങളൂട്ട്ട് കഴിവുകൾ പ്രദർശിപ്പിക്കാനും മികച്ച പാഠങ്ങൾ സ്വായത്തമാക്ക്ാകും വേദി വടിക്കാൻ തെക്ക് കിഴക്കൻ ഏഷ്യയിലെയും യൂറോപ്പിള്ലയും നിരവധി രാജ്യങ്ങളുമായി സർക്കാർ ബന്ധപ്പെട്ട് വരികയാണ്

ഐ ടി യു എസ് എ യാണ് ആഗോള സമ്മേളനം സംഘടിപ്പിച്ചത്

ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ വ്യവസായ മേഖലയോട് അദ്ദേഹം നിർദ്ദേശിച്ചു സായുധ് സേനാ പതാകദിനത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിമുക്ത ഭടൻമാരുടെയും വീരമൃത്യു വരിച്ച സൈനികരുടെ ബന്ധുക്കളുടെയും ക്ഷേമം എല്ലാവരുടെയും കർത്തവൃമാണെന്നും അദ്ദേഹം ഓർമിപ്പിച്ചു

വ്യാഴാഴ്ച നടന്ന നാലാംഘട്ട ചർച്ചയിൽ സമവായം ഉരുത്തിരിയാത്ത സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും ചർച്ച തുടരാൻ തീരുമാനിക്കുകയായിരുന്നു

വില കുറഞ്ഞതും ഫലപ്രദവുമായ കോവിഡ് വാക്സിനു് വേണ്ടി ലോകം ഇന്ത്യയിലേക്ക് ഉറ്റു നോക്കുകയാണെന്നും സർവ്വകൾഷിയോഗത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്ത് വികസിപ്പിച്ചു വരുന്ന എട്ട് വാക്സിനുകൾ പരീക്ഷണത്തിന്റെ വീവിധ ഘട്ടങ്ങളിലാണ് വാക്സിൻ നൽകുന്നതിന്റെ മുൻഗണനാർക്രമർ സംസ്ഥാനങ്ങളോട് ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു

കോവിഡ് വാക്സിൻ ഏവർക്കും ലഭ്യമാക്കണമെന്നും സമ്പന്ന രാഷ്ട്രങ്ങൾ ഇതിനായി വികസ്വര രാഷ്ട്രങ്ങളെ സഹായിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടാരെസ് പറഞ്ഞു അംഗരാജ്യങ്ങളുടെ പ്രതിനിധികൾക്ക് പുറമെ ലോക ഭക്ഷ്യ പദ്ധതിയുടെയും ലോകാരോഗ്യ സംഘടനയുടെയും തലവൻമാരും ചർച്ചയിൽ പങ്കെടുത്തു

മഹാമാരി ഇനിയുമേറെ നാൾ മുന്നോട്ട് പോയേക്കും നേതാക്കളും പൌരന്മാരും കൈക്കൊള്ളുന്ന നടപടികൾ അനുസരിച്ചായിരിക്കും കോവിഡിന്റെ ഗതിയെന്നും അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങൾ കൂടുതൽ ക്ഷമയും ജാഗ്രതയും പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അഅഞ്ച് ജില്ലകളിൽ പരസ്യ പ്രചാരണം നാളം വൈകിട്ട് കേന് അവസാനിക്കും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്

സംസ്ഥാനത്ത് ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട് മീൻപിടിത്തത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം തുടരും

കേന്ദ്ര ആഭ്യന്തരവകുപ്പ് ജോയിന്റ് സെക്രട്ടറി അശുതോഷ് അഗ്നി ഹോത്രി നയിക്കുന്ന എട്ടംഗ് സംഘം നാല് ദിവസത്തേക്കാണ് സന്ദർശനം നടത്തുന്നത്

മുഖ്യമന്ത്രി ് എടപ്പാടി പളനിസ്വാമിയുമായി സംഘം സംസാരിക്കും

ഇന്ത്യയുടെ സുരക്ഷ പോലീസ് സംവിധാനങ്ങൾക്ക് വലിയ ്സംഭാവന നൽകിയ വ്യക്തിയായിരുന്നു ശർമ നിരവധി ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം പങ്കാളിയായിരുന്നുവെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

സി ചെന്നൈയിൻ എഫ് സിയെ തോൽപിച്ചു ബാംബോലിം സ്സ്റ്റ്ഷിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നായകൻ സുനിൽ ഛേത്രിയാണ് വിജയഗോൾ നേടിയത് ലീഗിൽ ബംഗളൂരുവിന്റെ ആദ്യ വിജയമാണ് മൂന്നു മത്സരങ്ങളിൽ അഞ്ച് പോയിന്റുമായി ബംഗളൂരും മൂന്നാം സ്ഥാനത്താണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും

പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ സിഡ്നിയിൽ നടക്കും

കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലും ആയുഷ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രസഹമന്ത്രി ശ്രീപദ് നായികിന്റെയും നേതൃത്വത്തിലാണ് വെർച്ചൽ കൂടിക്കാഴ്ച നടന്നത് ആയുഷ് മന്ത്രാലയത്തിന്റെയും കോവിഡ് കാലത്തെ നിർണായക ഇടപെടലുകളെ ശ്രീ പീയുഷ് ഗോയൽ അനുമോദിച്ചു

ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിലുള്ള ഇടപെടൽ ആണെന്നും ഇത്തരം നടപടികൾ ആവർത്തിക്കുന്നത് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സാരമായി ബാധിക്കുമെന്നും വിദേശ്കാര്യ മന്ത്രാലയം കനേഡിയൻ ഹൈക്കമ്മിഷണറെ അറിയിച്ചു